അമേരിക്കയിലേക്ക് തിരിച്ചു ഐകൃരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും

ഇന്ത്യയുടെ അമിത് പൻഗൽ ഇന്ന് ഉസ്ബെക്കിസ്ഥാൻ താരം ഷക്കോബിഡിൻ സോയ്റോവുമായി ഏറ്റുമുട്ടും

ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ സമ്മേളനമടക്കം നിരവധി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും

അന്താരാഷ്ട്ര സമൂഹം നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും ആഗോള തലത്തിൽ ബഹുതലത്തിലുള്ള ശക്തമായ പ്രവർത്തനങ്ങൾകൊണ്ടുമാത്രമേ ഇത്തിനെ മറികടക്കാൻ കഴിയൂവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

സുസ്ഥിര വളർച്ചയിൽ ഇന്ത്യ കൈവരിച്ച് ്നേ്ട്ടങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ പരിപാടികളിൽ തുറന്ന് കാട്ടുമെന്നും ആദ്ദേഷം പറഞ്ഞു ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഗുണനിലവാരമുള്ള വീദ്യാഭ്യാസം കാലാവസ്ഥ തുടങ്ങിയവയാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഈ വർഷത്തെ വിഷയങ്ങൾ

ആ്മേരിക്കൻ പ്രസിഡന്റ് ആദ്യമായാണ് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന് ചെയ്യുന്നത് ഇത് പുതിയ നാഴികകല്ലാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കൂടാതെ ഊർജ കമ്പനികളിലെ മേധാവികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും

സച്ച്ഭാരത് അഭിയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതിന് ബിൽ ആന്റ് മെലിന്റാ ഗേറ്റ്സ് ഫൌണ്ടേഷൻ പുരസ്കാരം ശ്രീ

സന്ദർശനത്തിനിടെ നിരവധി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചയും പ്രധാനമന്ത്രി നടത്തും

ജയശങ്കർ മുതിർന്ന ഫിന്നിഷ് നേതൃത്വവുമായി തീവ്രവാദം സംബന്ധിച്ചും ഹരിതസാങ്കേതിക വിദ്യകൾ സംബന്ധിച്ചും ദീർഘനേരം ചർച്ചകൾ നടത്തി ഫിന്നിഷ് വിദേശകാര്യമന്ത്രി പെക്കാ ഹാവിസ്റ്റോയുമായും വിവിധ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധം സംബന്ധിച്ച് ശ്രീ എസ് ജയശങ്കർ വിശദമായ ചർച്ച നടത്തി

നേരത്തെ ഫിൻലന്റ് പാർലമെന്റ് സന്ദർശിച്ച വിദേശകാര്യമന്ത്രി ലിംഗസമത്വം സംബന്ധിച്ചും ചെറുകിട ധനവിനിയോഗം സംബന്ധിച്ചും ഡെപ്യൂട്ടി സ്പീക്കർ തൂല ഹാറ്റെയ്നെനുമായി ആശയങ്ങൾ പങ്കുവച്ചിരുന്നു

തങ്ങളുടെ താൽപര്യമാണ് സംരക്ഷിക്കപ്പെട്ടതെന്ന് ജനങ്ങൾ ഉടൻ തുറന്നുപറയുമെന്നും അദ്ദേഹം പ്പൂൺതു ജമ്മുകാശ്മീരിലെ വിഭാഗീയത അമർച്ച ചെയ്യുന്നതിൽ വിശാല്പ്സ്മീപനമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹ്പ്പ്പ്പറഞ്ഞു തടവിലാക്കപ്പെട്ടവർക്കുപോലും എല്ലാ സൌകര്യങ്ങളും ലഭിക്കു്ന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു

കോർപ്പറേറ്റ് നികുതിയിൽ ഇളവ് വരുത്താനുള്ള തീരുമാനം ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു ഈ നടപടി മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയ്ക്ക് ഊർജ്ജം പകരുമെന്നും കൂടുതൽ സ്ഥകാര്യ നിക്ഷേപം ഇന്ത്യയിലേയ്ക്ക് ആകർഷിക്കുമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

ഇന്ത്യയെ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുന്നതിനാണ് പുതിയ നടപടിയെന്ന് അദ്ദേഹം പറഞ്ഞു

നാടെങ്ങും സമാധി ദിനാചരണം നടക്കും ഗുരുവിന്റെ സ്മാധി സ്ഥലമായ വർക്കല ശിവഗിരിയിൽ വിവിധ ചടങ്ങുകളും പ്പ്പിർത്ഥനകളും നടക്കും രാവിലെ നടക്കുന്ന മഹാ സമാധി സമ്മേളനം ക്ട്രേന്ദ്രി ആർ

സിങ് ഉദ്ഘാടനം ചെയ്യും

ദുരന്തനിവാരണം ബഹിരാകാശ സഹകരണം എന്നീ മേഖലകളിലെ രണ്ട് ധാരണാപത്രങ്ങളിൽ രാഷ്ട്രപതിയും മംഗോളിയൻ പ്രസിഡന്റും ഒപ്പുവച്ചു ബഹിരാകാശം ദുരന്തനിവാരണ സംവിധാനം സംസ്ക്കാരം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും മംഗോളിയയും പരസ്പരം രേഖകൾ കൈമാറി മംഗോളിയയിൽ നിന്നുള്ള ഹ്രസ്വകാല യാത്രക്കാർക്ക് ഇ വിസ സംവിധാനം ലഭ്യമാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് പകരമായി ഇന്ത്യയിൽ നിന്നുള്ള ഹ്രസ്വകാല യാത്രക്കാർക്ക് വിസ ഓൺ അറൈവൽ പദ്ധതി മംഗോളിയയിൽ നടപ്പാക്കുമെന്ന് ഒരു ഔദ്യോഗിക പത്രക്കുറിപ്പിൽ പറയുന്നു

നിരവധി പേർക്ക് പരിക്കേറ്റു സൈനിക ചെക്പോസ്റ്റിലൂടെ ബസ് കടന്നു പോകുമ്പോഴാണ് ഇന്നലെ രാത്രി സ്ഫോടനം ഉണ്ടായത് കൊല്ലപ്പെട്ടവരെല്ലാം സാധാരണക്കാരാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല

ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിംഗുമായി നടത്തിയ്ക്ക്ഫോൺ സംഭാഷണത്തിലാണ് സൌദി രാജാവ് ഇക്കാര്യം അറിയിച്ചതെന്ന് സ്മദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു സൌദിയുടെ സുരക്ഷയ്ക്കും ഭരണകൂടത്തിന്റെ സ്ഥിരതയ്ക്കുമെതിരെയുള്ള അതിക്രമമാണ് ഈ ആക്രമണമെന്നും ഇത് ആഗോള ഊർജ വിപണിയെ സാരമായി ബാധിക്കുമെന്നും ചൈനീസ് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു

ദുബായ് എക്സ്പോ നടക്കുന്ന ഓപ്പർച്യൂണിറ്റി ഡിസ്ട്രിക്റ്റിലെ നാല് നിലകളുള്ള ഇന്ത്യൻ പവിലിയന്റെ മാതൃക അദ്ദേഹം പ്രകാശനം ചെയ്യും ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തെയും സംസ്ക്കാരത്തെയും ഇന്ത്യ യു എ ഇ ബന്ധത്തെയും പവിലിയൻ പ്രതിനിധീകരിക്കുമെന്ന് കോൺസൽ ജനറൽ വിപൂൽ ദൂബായിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

നോയിഡ ഗ്രേറ്റർ നോയിഡ ജംഷഡ്പൂർ ഫോർട്ട് ്ഏരിയ ഡവലപ്പ്മെന്റ് അതോറിറ്റി തുടങ്ങിയ വ്യാവസായിക ടൌൺഷിപ്പുകൾ ഇതിന് ഉദാഹരണമാണ്

ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻതാരം ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്

എട്ട് വർഷത്തിനുശേഷം ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ഇന്ത്യൻതാരം സുശീൽകുമാർ അസിർബൈജാൻ താരത്തോട് പരാജയപ്പെട്ടു